പ്രധാനമന്ത്രി രാജ്യത്തെ വിദ്യാർത്ഥികളുമായി പരീക്ഷകൾക്ക് മുന്നോടിയായി നടത്തുന്ന പരീക്ഷാ പേ ചർച്ചയിൽ പങ്കാളിയാവാൻ ഇന്നുകൂടി അപേക്ഷിക്കാം

അഹമ്മദാബാദിൽ ഐ എസ് എൽ ഏഴാം കിരീടം മുംബൈ സിറ്റിക്ക്

കുട്ടികളുടെ പരീക്ഷാസമ്മർദ്ദം ലഘൂകരിച്ച് പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ ആത്മവിശ്വാസം പകരാൻ വേണ്ടിയാണ് പരീക്ഷാ പേ ചർച്ച എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്

പരിപാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിനമാണ് ഇന്ന് ഇന്നവേറ്റ് ഇന്ത്യ ഡോട്ട് മൈ ജിഓവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി കുട്ടികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം

വെബ്സൈറ്റിൽ നിർദേശിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അവസരമുണ്ട്

പരീക്ഷ പേ ചർച്ചയുടെ നാലാം പതിപ്പാണ് ഇക്കുറി സംഘടിപ്പിക്കുന്നത്

കേരളം തമിഴ്നാട് കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ആരംഭിച്ചു

പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ബിജെപി അധ്യക്ഷൻ ജെ

ഡി

കോൺഗ്രസ് ബിജെപി സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് പുറത്തുവന്നേക്കും വിശദാംശങ്ങളുമായി അശ്വതി ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ൾ ചുവരെഴുത്തിന്റെയും മണ്ഡലം കൺവെൻഷനുകളുടേയുക്കുപ്പ് തിരക്കുകളിലേക്ക് കടന്നു

എന്നാൽ യു ഡി

ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

സംസ്ഥാന ഘടകത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചതായും ഇന്ന് രാവിലെയോടെ പട്ടിക പുറത്തുവരുമെന്നും കെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വെള്ളിയാഴ്ചവരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം

തെരഞ്ഞെടുപ്പ് കമീഷന്റെ നിർദേശമനുസരിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വരണാധികാരികൾ പത്രിക സ്വീകരിക്കുന്നത്

ഓൺലൈനായി പത്രിക സമർപ്പിക്കുന്നവർ പകർപ്പ് വരണാധികാരിക്ക് നൽകണം

കന്യാകുമാരി ലോക്സഭാ ഉപതെരഞ്ഞെടു പ്പിനുള്ള സ്ഥാനാർത്ഥിയായി എംപി യ്യായിരുന്ന വസന്തകുമാറിന്റെ മകൻ വിജയകുമാറിനെ കോൺഗ്ഗ്സ് ്പ്രഖ്യാപിച്ചു

കീഴ് ക വേളൂർ തിരുപ്പറംകുൺട്രം കോവിൽപ്പെട്ടി ഗന്ധർവ്വകോട്ടൈ ആരൂർ ദിണ്ടുഗൽ എന്നിവിടങ്ങളിലാണ് സിപിഐഎം മത്സരിക്കുന്നത്

തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക നിരീക്ഷകരും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത വെർച്ചൽ യോഗം ഇന്നലെ നടന്നു

ചില സ്ഥലങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ പരസൃങ്ങൾക്കുള്ള ഇടം കുത്തകയാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട്ടുന്ന് കമ്മീഷൻ കത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പരസ്യഇടങ്ങളുടെ കാര്യത്തിൽ സ്ഥലത്ത് ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെയോ സ്ഥാനാർത്ഥിയുടെയോ ആധിപത്യമോ കുത്തകയോട് ഇല്ലെണ്ന് ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു ഇക്കാരൃത്തിൽ എല്ലാ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും തു്ല്യ അവസരം നൽകണം ഇക്കാര്യം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഉറപ്പുവരുത്തണമെന്ന് കത്തിൽ പറയുന്നു

മുതിർന്ന നേതാവും രാജ്യരക്ഷ മന്ത്രിയുമായ രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇന്ന് അപ്പർ ആസാമിൽ നിരവധി റാലികളെ അഭിസംബോധന ചെയ്യും

മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ജിതേന്ദ്ര സിംഗ് റിപ്പൺ ബോറ ഗൌരവ് ഗോഗോയ് എന്നിവരും പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗേൽ ഇന്ന് ദിബ്രുഗഡിൽ പ്രചാരണത്തിനെത്തും

ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ സച്ചിൻ വാസയും അംഗമായിരുന്നു

രാജ്യത്തെ വിമാന യാത്ര ചെലവ് കുറഞ്ഞതും വ്യാപകവുമാക്കാൻ വിഭാവനം ചെയ്യുന്ന സുപ്രധാന പദ്ധതിയാണ് ഉഡാൻ

ചില മുസ്ലീം സ്ത്രീകൾ ധരിക്കുന്ന മുഖാവരണം നിരോധിക്കുന്നതിന് മന്ത്രിസഭയുടെ അനുമതിക്കായി കത്ത് നൽകിയെന്ന് പൊതുസുരക്ഷാ മന്ത്രി ശരത് വീരശേഖര പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം ലംഘിക്കുന്ന ആയിരത്തിലധികം മദ്രസകളെ നിരോധിക്കാനും ശ്രീലങ്കൻ സർക്കാർ പദ്ധതിയിടുന്നു

മണ്ടാലെയിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ അഞ്ച് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു

ഫൈനലിൽ കരുത്തരായ എ

കെ മോഹൻ ബഗാനെ ഒന്നിനെതിരേ രണ്ടുഗോളുകൾക്ക് തകർത്താണ് മുംബൈ ആദ്യ ഐ എസ്

എസ്